പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി

ചാമ്പ്യൻഷിപ്പ് സെമിഫൈനൽ കാണാതെ പുറത്തായി

ഗതാഗതം ഭവനം എന്നീ മേഖലകളിലെ ബൃഹത് പദ്ധതികളുടെ പുരോഗതിയാണ് പ്രധാനമന്ത്രി പരിശോധിച്ചത്

രാജ്യത്തെ റോഡ് നിർമ്മാണത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായതായി നിതി ആയോഗ് സി ഇ ഒ അമിതാഭ് കാന്ത് യോഗത്തെ അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബ്രിട്ടണിലെ അധികൃതർക്ക് കൈമാറാൻ ലണ്ടനിലെ ഹൈക്കമ്മീഷൻ വഴി പ്രത്യേക നയതന്ത്ര കൈമാറ്റത്തിലൂടെയാണ് വിട്ടുകിട്ടണമെന്ന ആവശ്യാ അയച്ചിട്ടുള്ളതെന്ന് രാജ്യസഭയിൽ എഴുതി സമർപ്പിച്ച മറുപടിയിൽ വിദേശകാര്യ സഹമന്ത്രി ജനറൽ വി കെ സിംഗ് അറിയിച്ചു നീരവ് മോദിയുടെ പാസ്പോർട്ട് റദ്ദാക്കിയിട്ടുള്ള ിപ്പിവരവും ഇന്റർപോളിന് കൈമാറാൻ മന്ത്രാലയം സി ബി ഐ യ്ക്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

വാണിജ്യം നിക്ഷേപം പ്രതിരോധം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യംവച്ചായിരുന്നു ചർച്ചു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്നലെയാണ് ശ്രീമതി സുഷമ കസാഖിസ്ഥാൻ തലസ്ഥാനമായ അസ്താനയിൽ എത്തിയത് മധ്യേഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ നിക്ഷേപ പങ്കാളിയാണ് കസാഖിസ്ഥാൻ ഇന്ത്യൻ ജനതയ്ക്ക് ഉൌഷ്മള വരവേൽപ്പാണ് കസാഖിസ്ഥാൻ നൽകിയതെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് കസാഖ്സ്ഥാനിലെ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ വിഭവസമ്പന്നമായ മദ്ധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതു ലക്ഷ്യമിട്ടാണ് ത്രിരാഷ്ട്ര സന്ദർശനം കിർഗിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നീ മധ്യേഷ്യൻ രാജ്യങ്ങളിലാണ് ഇനിയുള്ള സന്ദർശനം

അഞ്ചു കോടി തികയ്ക്കുന്ന ഗുണഭോക്താവിന് ലോക്സഭ സ്പീക്കർ സുമിത്രാ മഹാജൻ ഇന്ന് ഗ്യാസ് കണ്ണക്ഷൻ നൽകും

പാവപ്പെട്ടവർക്കും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പാചക വാതക സിലിണ്ടറുകൾ സൌജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന

പ്രതീക്ഷിച്ചതിനെക്കാൾ എട്ട് മാസം മുന്നേയാണ് ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

രാജ്യസ്ട്രിൽ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം കരട് പത്രിക മാത്രമാണ് പുറത്തിറക്കിയത് എല്ലാ് ഇന്ത്യക്കാരും പട്ടികയിൽ ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ വേർതിരിവ് ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതെങ്കിലും കാരണവശാൽ പട്ടികയിൽ നിന്ന് പുറത്തായാൽ പൌരൻമാർക്ക് മതിയായ രേഖകൾ സമർപ്പിച്ച് ഇനിയും പട്ടികയിൽ ഇടംനേടാം പട്ടികയിൽ ഇടംപിടിക്കാത്തവർക്ക് നേരെ യാതൊരു നടപടികളും തൽക്കാലം സ്വീകരിക്കില്ലെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു അതിനിടെ പൌരത്വ പട്ടിക വിഷയം തൃണമൂൽ കോൺഗ്രസ്സ് അംഗങ്ങൾ ലോക്സഭയിലും ഉന്നയിച്ചു

ലോലാബ് മേഖലയിൽ രാവിലെ കാറിൽ സഞ്ചരിച്ചിരുന്ന ഒരുസംഘം തീവ്രവാദികളെ സുരക്ഷാസേന തടയുകയായിരുന്നു തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് രണ്ടുപേർ കൊല്ലപ്പെട്ടതെന്ന് സംസ്ഥാന പൊലീസ് മേധാവി എസ് പി വൈദ് ആകാശവാണിയോട് പറഞ്ഞു അതിനിടെ ബാരാമുള്ള ജില്ലയിലെ സോംപൂറിൽ ദ്രുസു ബഹ്റംപോറ ഗ്രാമത്തിൽ സുരക്ഷാസേനയും തീവ്രവാദികളും തമ്മിൽ ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ഏറ്റുമുട്ടൽ തുടരുകയാണ്ടെന്ന് പൊലീസ് മേധാവി പറഞ്ഞു

പ്രദേശത്തെ ഒരു വീട്ടിൽ ്തുണ്ട് ജയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് റ്റിപ്പോ്ർട്ട്

കൂടുതൽ പേർക്ക് തൊഴിൽസാധ്യത ഉറപ്പാക്കിയതായി റെയിൽ മന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു

പരമാവധി അപേക്ഷകർക്ക് അവരുടെ ഏറ്റവും അടുത്ത നഗരത്തിലായിരിക്കും പരീക്ഷ സെന്റർ അനുവദിക്കുകയെന്ന് റെയിൽവേ അറിയിക്കുന്നു

ലോക റാങ്കിംഗിൽ എട്ടാം സ്ഥാനക്കാരിയെ ഒളമ്പിക് സ്വർണമെഡൽ ജേത്രിയുമായ കരോളിന മാരിനാണ് സൈനയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയത്

ഇന്ത്യയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അയർലന്റ് ആദ്യമായി സെമിയിൽ കടന്നു

ഇന്ത്യയ്ക്ക് വേണ്ടി റീന മാത്രമാണ് ഗോൾ നേടിയത്

പ്രത്യേക ജഡ്ജി എസ്

എല്ലാ വ്യവസായവും ഓൺലൈനായി കൊണ്ടിരിക്കുന്ന കാലമാണിതെന്ന് കൌൺസിൽ ചെയർമാനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ സുശീൽ കുമാർ മോദി അറിയിച്ചു